എൽ

ജയ് പാൽ റെഡ്ഡിയ് ക് അന്ത്യാഞ്ജലി

മനസ്സുകൊണ്ടും ആത്മാവുകൊണ്ടും പൂർണ്ണ ഭാരതീയമായി മാറിയ ദൌത്യമാണ് ചന്ദ്രയാനെന്ന് അദ്ദേഹം പറഞ്ഞു ലോകോത്തര നിലവാരം പുലർത്തുന്ന ചന്ദ്രയാൻ ഒരു പ്രതിബന്ധത്തിലും പതറാൻ പാടില്ല എന്ന സന്ദേശമാണ് നൽകുന്നത് താൽക്കാലിക പരാജ യങ്ങളെ അതിവേഗം തരണം ചെയ്ത് വിജയപാതയിലേക്ക് നയിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു ഈ സാഹചരൃത്തിൽ രാജൃത്തെ വിദ്യാർത്ഥികൾക്കായി ബഹിരാ കാശവുമായി ബന്ധപ്പെട്ട പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കാൻ തീരു മാനിച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു

ഇതിൽ ജേതാക്കളാകുന്ന വരെ ഗവൺമെന്റ് ചെലവിൽ സെപ്പ്തംബറിൽ ചന്ദ്രയാൻ ദൌത്യം വിജയ ത്തിലെത്തുന്ന വേളയിൽ ശ്രീഹരിക്കോട്ടയിൽ കൊണ്ടുപോകുമെന്ന് പ്രധാ നമന്ത്രി പറഞ്ഞു ജമ്മകശ്മീരിൽ നടപ്പാക്കുന്ന ഗ്രാമങ്ങളിലേക്ക് മടങ്ങി എന്ന പരിപാടി അവിടുത്തെ ജനത്യുടെ സ്ഥപ്നങ്ങളുടെ പൂർത്തീകരണമാണെന്ന് നരേ ന്ദ്രമോദി വിലയിരുത്തി ഉദ്യോഗസ്ഥരും അധികൃതരും ഗ്രാമങ്ങളിലെത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ഗവൺമെന്റ് പദ്ധതികളുടെ സവിശേഷതകൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ ഏറെ സഹാ യിച്ചതായി അദ്ദേഹം വിലയിരുത്തി പുരോഗതിയുടെ ശക്തി ബോംബി ന്റേയും തോക്കിന്റേയും നശീകരണശേഷിയ്ക്ക് അപ്പുറമാണെന്ന് പരിപാടി വൃക്തമാക്കിയതായും പ്രധാനമന്ത്രി പറഞ്ഞു ഇത്തവണത്തെ സ്വാതന്ത്യദിനം വൃത്യസ്ഥമായ ആഘോഷപരിപാടി കളിലൂടെ അവിസ്മരണീയമാക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ദേശീയ ശുചിത്വ പരിപാടി നഗരങ്ങളുടേയും ഗ്രാമങ്ങളുടേയും സൌന്ദ ര്യംകൂടി വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്ന യോഗേഷ് സൈനിയുടെയും കലാകാരന്മാരുടെയും ശ്രമങ്ങളെ പ്രധാനമന്ത്രി അഭി നന്ദിച്ചു മുഖ്യമന്ത്രി ബി

യെദ്യുരപ്പ നാളെ വിശ്വാസവോട്ട് തേടാനിരിക്കെ സ്പീക്കറുടെ നടപടി നിർണ്ണായകമാവും

ഉച്ചകഴിഞ്ഞ് ബിജെപി എം എൽ എ മാരുടെ യോഗം യെദ്യു രപ്പ ബംഗലൂരുവിൽ വിളിച്ചുചേർത്തിട്ടുണ്ട്

സ്വമേധയാ ഒഴിഞ്ഞുപോയില്ലെങ്കിൽ സ്പീക്കർക്കെതിരെ അവിശ്വാസപ്രമേയം കൊണ്ടുവരുന്നകാര്യം ബിജെപി പരിഗണിക്കുന്നതായി നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു

ഗവൺമെന്റ് ്വിവരാവകാശ നിയമം ദൂർബലപ്പെടുത്തി യത് അഴിമതിക്കാരെ സഹായിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി കുറ്റപ്പെടുത്തി അഴിമതിയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന വർ നിയമഭേദഗതിക്കെതിരെ നിശബ്ദത പാലിക്കുകയാണെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധം മറികടന്നാണ് വിവരാവകാശ ഭേദഗതി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ എസ്

ഹൈദരാബാ ദിലെ ജൂബിലി ഹിൽസിലെ വസതിയിൽ പൊതുദർശനത്തിനുവെച്ച മൃത ദേഹത്തിൽ ഒട്ടേറെ നേതാക്കൾ അന്തിമോപചാരമർപ്പിച്ചു ഏറെ നാളായി രോഗബാധിതനായിരുന്ന അദ്ദേഹം ഇന്ന് പുലർച്ചെ ഹൈദരബാദിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്തരിച്ചത്

കെ ഗുജ്റാൾ ഗ്വൺമെന്റിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായും മൻമോഹൻസിംഗ് ഗവൺമെന്റിൽ നഗര വികസന പെട്രോ ളിയം പ്രകൃതി വാതക ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്

മികച്ച ഭരണകർത്താവായിരുന്നു അദ്ദേഹമെന്നും അദ്ദേ ഹത്തിന്റെ വേർപാട് അങ്ങേയറ്റം ദുഖകരമാണെന്നും നരേന്ദ്രമോദി ട്വിറ്റ റിൽ കുറിച്ചു മികച്ച് വാഗ്മിയും പ്രസംഗകനുമായിരുന്നു ജയ്പാൽറെഡ്ഡി എന്ന് അനു സ്മരിച്ച ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ബൌദ്ധികതയും നർമ്മബോ ധവും ഒരേപോലെ പുലർത്തിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേ തെന്ന് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ജയ്പാൽ റെഡ്ഡിയുടെ നിര്യാ ണത്തിൽ അനുശോചനമറിയിച്ചു

ജലവിഭവ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ ജില്ലകൾ സന്ദർശിക്കുമെന്ന് മന്ത്രി കെ കൃ ഷ്ണൻകുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു ജലസേചനം ജല അതോറി റ്റി ഭൂഗർഭജലം ജലനിധി തുടങ്ങി വകുപ്പിന് കീഴിലെ എല്ലാ ഓഫീസുക ളുടെയും പ്രവർത്തനം വിലയിരുത്തുകയാണ് സന്ദർശന ലക്ഷ്യം കോട്ടയം ജില്ലയിലാണ് ആദ്യ പരൃടനം

മൂന്നാം മുറക്കാരായ പൊലീസുകാരുടെ പട്ടിക്യുണ്ടാക്കാൻ ഡി ജി

ലോക്നാഥ് ബഹ്റ നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട് ലോക്കപ്പ് മർദ്ദനങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് നടപടി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഡി ജി

ണ്ടെ ങ്കിൽ അറിയിക്കാനും

ജി

പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്ന സാച ര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈയിടെ ഉന്നതപോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു ഇതേതുടർന്നാണ് ഡി ജി പിയുടെ നടപടി സംസ്ഥാനത്തെ ജയിലുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് ജയിൽ ഡി

പി ഋഷിരാജ് സിംഗ് അറിയിച്ചു ജയിലുകളുടെ കവാടത്തിൽ ബോഡി സ്കാനറും ജയിലിൽ മൊബൈൽ ജാമറും സ്ഥാപിക്കും കണ്ണൂരിൽ ജയിൽ ഉപദേശക സമിതി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ഋഷിരാജ് സിംഗ് എറണാകുളം സംഭവത്തിൽ പാർട്ടി സെക്രട്ടറിയെന്ന നിലയിൽ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി മുഖ്യമന്ത്രിയെ എല്ലാകാര്യവും ധരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു എം എൽ എക്കെതിരായ മർദനത്തിൽ കലക്ടറുടെ റിപ്പോർട്ട് വന്ന ശേഷം പ്രതികരിക്കുമെന്നും കാനം അറിയിച്ചു

ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് നാരായണക്കുറു പ്പിന്റെ സാന്നിധൃത്തിലായിരിക്കും തുടർനടപടികൾ ഇതിനായി ഫോറൻസിക് വിദഗ്ധരെ നിയോഗിച്ചിട്ടുണ്ട് കോഴിക്കോട് തുഷാരഗിരിയിൽ ഏഴാമത് അന്താരാഷ്ട്ര കയാക്കിംഗ് ചാംപ്യൻഷിപ്പിൽ സൂപ്പർഫൈനൽ മത്സരങ്ങൾ ഇന്ന് പുല്ലൂരാംപാറ ഇലന്തുംകടവിൽ ഇരുവഴിഞ്ഞിപ്പുഴ യിലാണ് ഇന്ന് മത്സരങ്ങൾ് രാവിലെ കൊച്ചരിപ്പാറയിൽ നിന്ന് ഡൌൺ റിവർ മത്സരങ്ങൾ തുടങ്ങി വൈകീട്ട് കുറുങ്കയത്ത് നിന്നാരംഭിക്കുന്ന സൂപ്പർ ഫൈനലിൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത മുഴുവൻ കയാക്കർമാരും ഒന്നിച്ച് അണിനിരക്കും വിവിധ മത്സരങ്ങളിൽ പുരുഷവനിതാ വിഭാഗങ്ങളിലായി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയവരെയാണ് ചാമ്പ്യൻഷിപ്പിലെ റാപ്പിഡ് രാജയായും റാപ്പിഡ് റാണിയായും തെരഞ്ഞെടുക്കുക

രാവിലെ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു മന്ത്രിമാരായ എ കെ ബാലൻ എസി മൊയ്തീൻ സി രവീന്ദ്രനാഥ് വി എസ് സുനിൽകുമാർ ഗവൺമെന്റ് ചീഫ് വിപ്പ് കെ രാജൻ എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ തുടങ്ങി നിരവധിപേരാണ് പ്രിയക വിയ്ക്ക് അന്ത്യാജ്ഞലി അർപ്പിക്കാൻ എത്തിയത് പാലക്കാട് പെരുവെമ്പ് കുടിവെള്ള പദ്ധതിയുടെ വിപുലീകരണം ഇന്ന് വ്വൈകിട്ട് മന്ത്രി കെ

തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സംഘർഷത്തിനിടെ വിദ്യാർത്ഥിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾകൂടി പിടിയിലായി

കേസിൽ ഇതുവരെ ആറുപേർ അറസ്റ്റിലായിട്ടുണ്ട്

എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷ ത്തിൽ അഖിൽ എന്ന വിദ്യാർത്ഥിയ്ക്ക് കുത്തേറ്റത്

വിവാഹം മുടക്കുമെന്ന ഭീഷണിയെത്തുടർന്ന് രാഖിയെ കൊലപ്പെടുത്താൻ തീരു മാനിക്കുകയായിരുന്നു ഈ ഉദ്ദേശ്യത്തോടെയാണ് യുവതിയെ കാറിൽക യറ്റി കൊണ്ടുപോയതെന്നും മൃതദേഹം മറവുചെയ്യാൻ നേരത്തെ കുഴി യെടുത്തിരുന്നതായും അഖിൽ പൊലീസിന് മൊഴി നൽകി ഇന്നലെ രാത്രി തിരുവനന്തപുരം അന്താരാഷ്ട്രവിമാനത്താവളത്തിലാണ് അഖിലിനെ പൊലീസ് അറസ്റ്റ് ചെയ്തത്

ബി എസ് ഇ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ഹാജർകുറവു സംബന്ധിച്ച് നിർബന്ധമായും നേരിട്ട് റിപ്പോർട്ട് നൽകണമെന്ന് സി ബി എസ്

ബന്ധപ്പെട്ട രേഖകൾ സഹിതമാ യിരിക്കണം റിപ്പോർട്ട് നൽകേണ്ടതെന്നും ഹാജർകുറവിന്റെ കാര്യത്തിൽ നിയമപ്രകാരം ബോർഡായിരിക്കും തീരുമാനമെടുക്കുകയെന്നും സി ബി എസ്